ത ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹ ചടങ്ങുകളും ദർശനവും തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു ത കഴിഞ്ഞ മൂന്നുവർഷം ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക് ലേറ്റ് ഫീയിൽ ഇളവ് അനുവദിച്ച് ആംനെസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ചതായി മന്ത്രി ഡോ തോമസ് ഐസക് ത കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് ഒഴുക്കിൽപെട്ട് കാണാതായ മൂന്നുപേർക്കായി തെരച്ചിൽ തുടരുന്നു

വീഡിയോ കോൺഫറൻസ് വഴി വൈകിട്ട് മൂന്നിനാണ് യോഗം സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും രണ്ടായി തിരിച്ചാണ് ചർച്ച നടത്തുക

ആറാം തവണയാണ് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി കോവിഡ് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വീഡിയോ കോൺഫറൻസിംഗ് നടത്തുന്നത്

പത്തനംതിട്ടയിൽ ഏഴുപേർക്കും എറണാകുളം പാലക്കാട് ജില്ലകളിൽ അഞ്ചുപേർക്ക് വീതവും കൊല്ലം കോഴിക്കോട് കാസർകോട് ജില്ലകളിൽ നാലുപേർക്ക് വീതവും കോട്ടയം കണ്ണൂർ ജില്ലകളിൽ മൂന്നുപേർക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചു തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിൽ ഓരോരുത്തരിലാണ് രോഗം കണ്ടെത്തിയത്

കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി പി

ആലുവ പാനായിക്കുളം മേത്താനം പള്ളിമുറ്റത്ത് അബ്ദുറഹ്മാൻ ആണ് മരിച്ചത്

കുവൈത്ത് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് വിമാനങ്ങൾ കൊച്ചിയിൽ എത്തും ഇന്നലെ കുവൈത്തിൽ നിന്ന് മൂന്ന് വിമാനങ്ങളും ദോഹയിൽ നിന്ന് ഒരു വിമാനവും കൊച്ചിയിലെത്തി

വി വീൻഡം എന്ന കപ്പൽ ഇന്നലെ കൊച്ചി തുറമുഖത്ത് എത്തി ഇവരെ ആരോഗ്യ പരിശോധനക്കുശേഷം ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി

രുര ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹച്ചടങ്ങുകളും ദർശനവും താൽക്കാലികമായി നിർത്തിവച്ചു ഇന്ന് ദർശനം അനുവദിക്കില്ല ഇന്നത്തേക്ക് ബുക്ക് ചെയ്ത രണ്ട് വിവാഹങ്ങൾ മാത്രം നടത്തും

ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമുളള ചാവക്കാട് മുനിസിപ്പാലിറ്റി വടക്കേകാട് പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങൾ കണ്ടയെന്റ്മെന്റ് സോണുകളായി പ്രഖ്യാപിച്ചതോടെയാണ് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തുറന്ന ക്ഷേത്രം താൽക്കാലികമായി വീണ്ടും അടച്ചത്

കുടിയേറ്റ തൊഴിലാളികൾക്കും ഒറ്റപ്പെട്ട നിർധന കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് രുമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഷിക മേഖലയിൽ പതിനായിരത്തോളം കർഷക ഉല്പാദക സംഘങ്ങൾ രൂപീകരിച്ച് വിപ്ലവകരമായ നവീകരണമാണ് വരുത്തിയതെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു ചെറുകിട കർഷക കാർഷിക വ്യാപാരി സംഘങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആയിരത്തോളം ഓൺലൈൻ മാർക്കറ്റുകൾ ബന്ധിപ്പിച്ചതിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു

ടി റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക് ലേറ്റ് ഫീയിൽ ഇളവ് അനുവദിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ ജി

ടി കൌൺസിൽ യോഗം ആംനെസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ചതായി മന്ത്രി ഡോ തോമസ് ഐസക് അറിയിച്ചു

ചെറുകിട വ്യാപാരികൾക്ക് കോവിഡ് പരിഗണിച്ച് നൽകിയിരുന്ന പലിശ വൈകൽ ഫീസ് ഇളവുകൾ സെപ്തംബർ വരെ നീട്ടാനും യോഗം തീരുമാനിച്ചതായി മന്ത്രി ഡോ

ആദിവാസികൾക്ക് കണ്ടെത്തിയ ഭൂമിയിൽ വാസയോഗ്യമല്ലാത്ത ഭൂമിയ്ക്ക് പകരം ഭൂമി കണ്ടെത്താൻ ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചിട്ടുണ്ട് ദേദ ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട ന്യൂനമർദ്ദത്തെത്തുടർന്ന് കാലവർഷം ശക്തമായി ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു രുഭ കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് പാറക്കടവ് പുഴയിൽ കുളിക്കാനിറങ്ങിയ മൂന്നുപേരെ ഇന്നലെ വൈകിട്ട് ഒഴുക്കിൽപെട്ട് കാണാതായി ഇരിക്കൂർ സ്വദേശി മനീഷ് അരിയിക്കാമലയിലെ സനൂപ് പൈസക്കരിയിലെ അരുൺ എന്നിവരെയാണ് കാണാതായത് പൊലീസും ഫയർഫോഴ്സും തിരച്ചിൽ തുടരുകയാണ് രുമ ഇടുക്കി ജില്ലയിൽ മൊബൈൽ റേഞ്ചിൽ കുറവ് അനുഭവപ്പെടുന്ന മേഖലകളിൽ സേവന ലഭ്യത ഉറപ്പാക്കാൻ എറണാകുളം ഏരിയ പ്രിൻസിപ്പൽ ജനറൽ മാനേജർ നിർദ്ദേശം നൽകി ഓൺലൈൻ പഠനത്തിന് മൊബൈൽ കവറേജും ഹൈ സ്പീഡ് ഡാറ്റയും ഉറപ്പാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി വിളിച്ചു ചേർത്ത യോഗം നിർദ്ദേശിച്ചു രുമ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന് നടക്കും കോവിഡ് പശ്ചാത്തലത്തിൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാതെയാണ് ചടങ്ങുകൾ നടക്കുന്നത്

രുര ദക്ഷിണ റെയിൽവേ ചീഫ് കൊമേഴ്സ്യൽ മാനേജറായി ആർ

പ്രിയംവദ വിശ്വനാഥൻ വിരമിച്ചതിനെത്തുടർന്നാണ് പുതിയ നിയമനം